കേരളത്തിന്റെ കാർഷിക രംഗം മികച്ചതാണ് കൃഷിക്ക് വലിയ പ്രചാരണം നൽകുന്ന ഗവൺമെന്റാണ് കേരളത്തിൽ

ഇത് തടയാനാവശ്യമായ ആധുനിക സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

മദ്യനയം നിലവിലെ മദ്യനയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് മന്ത്രി ടി പി രാമകൃഷ്ണൻ കോഴിക്കോട് പറഞ്ഞു

അതുപ്രകാരം പുതിയ സാമ്പത്തികവർഷത്തിൽ മദ്യനയം തയ്യാറാക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഏതെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ട സാഹചര്യമുണ്ടായാൽ ഗവൺമെന്റ് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാമാസത്തേയും ഒന്നാം തീയ്യതിയിലെ ഡ്രൈഡേ മാറ്റുന്നത് സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

കാഴ്ച കേൾവി പരിമിതർക്കു സ്വയം പ്രാപ്തരാകാനുളള ശാസ്ത്ര സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള ചർച്ചകളും വിവരശേഖരണങ്ങളും പഠനങ്ങളുമാണ് സമ്മേളനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്